പ്ര പ്രധാനമന്ത്രി നരേ്ർന്ദ്മോദി ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ പ്രിക്മ സിംഗെയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും

തിങ്കളാഴ്ച വരെ നിരോധനാജ്ഞ

അന്തരിച്ച എം എൽ എ അബ്ദുൾ റസാഖിന്റെ ഭൌതികശരീരം പി ബി ഇന്ന് വൈകിട്ട് ഖബറടക്കും

സ്ഥിതിഗതികൾ വിലയിരുത്താനും മേൽനോട്ടം വഹിക്കുവാനും മന്ത്രിതല സമിതിയും രുപീകരിച്ചു

കേന്ദ്ര റെയിൽവേ സഹമന്ത്രി മനോജ് സിൻഹയും ഉന്നത ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്ത് എത്തി അമൃത്സറിനു സമീപം ജൌറാ ഫടകിലാണ് രാജൃത്തെ നടുക്കിയ അപകടമുണ്ടായത്

ദസറ ആഘോഷങ്ങളോടനുബന്ധിച്ച് രാവണന്റെ കോലം കത്തിക്കുന്നത് വീക്ഷിക്കുവാൻ ട്രെയിൽവേ ട്രാക്കിൽ നിന്നവരുടെ ഇടയിലൂടെ ട്രെയിൻ കടന്നുപോയതിനെ തുടർന്നാണ് അപടകടമുണ്ടായത്

ജലന്ധറിൽ നിന്നും അമൃത്സറിലേക്ക് പോകുകയായിരുന്നു ട്രെയിൻ മരിച്ചവരിൽ പലരുടെയും മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ന്യൂസ് ഡസക് ആകാശവാണി

ശ്രീലങ്കയിലെ ജാഫ്നയിൽ ഇന്ത്യൻ സഹായത്തോടെ നടപ്പാക്കുന്ന ഭവനനിർമ്മാണ പദ്ധതിയുടെ പുരോഗതി ഇരുനേതാക്കളും അവലോകനം ചെയ്യും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്രവിദേശകാരൃമന്ത്രി സുഷമ സ്വരാജ് എന്നിവരുമായും ശ്രീലങ്കൻ പ്രധാനമന്ത്രി ചർച്ച നടത്തും മൂന്ന് ദിവസത്തെ ഇന്ത്യ്ൻ സന്ദർശനത്തിനായി വ്യാഴാഴ്ചയാണ് വിക്രമസിംഗെ ന്യൂഏൽഹ്റിയിലെത്തിയത്

ഇതിനോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ജമ്മു മുൻസിപ്പൽ കോർപ്പറേഷനിലേക്കും ജമ്മു ജില്ലയിലെ ഏഴ് മുൻസിപ്പൽ കമ്മിറ്റികളിലേക്കുമുള്ള വോട്ടെണ്ണൽ നടക്കുന്നത് ജമ്മു ബിക്രട്ട ചൌക്ക് ഗവൺമെന്റ് പോളിടെക്നിക്ക് കോളേജിലാണ് ബാക്കിയുള്ള ഒൻപത് ജില്ലകളിലെ വോട്ടെണ്ണൽ അതാത് ജില്ലാ കേന്ദ്രങ്ങളിലും നടക്കും ഇന്ന് വൈകുന്നേരത്തോടെ ഫലം പൂർണ്ണമായും അറിയാൻ കഴിയും

ഏഷ്യയിലേയും യൂറോപ്പിലെയും അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത് ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവാണ് നയിച്ചത്

ഇസ്താംബൂൾ നയതന്ത്രകാര്യാലയത്തിനുള്ളിൽ കൂടിക്കാഴ്ച നടത്തിയവരുമായി ഉണ്ടായ വാക്കുതർക്കമാണ് ഖഷോഗിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് സൌദി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു

ഇന്നലെ രാത്രി പുരി ഭൂവനേശ്വർ ഹൈവേയിൽ പിപ്പിലിക്ക് സമീപമായിരുന്നു അപകടം എതിരെ വന്ന മോട്ടോർ ബൈക്കിൽ ഇടിച്ച കാർ നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിയുകയായിരുന്നു

എന്നാൽ ആളപായം ഉണ്ടായില്ല ഉത്തരമേഖലയിലെ പെഷവാർ ഇസ്താമാബാദ് സ്വാത് ബുനേർ ഷാംഗില മലാക്കണ്ട് എന്നിവിടങ്ങളിലാണ് ഭൂകമ്പം അനുഭവപ്പെട്ടതെന്ന് പാക്കിസ്ഥാൻ ദിനപത്രമായ ദ ഡോൺ റിപ്പോർട്ട് ചെയ്തു

വരാൻ സാദ്ധ്യതയുള്ള യുവതികളുടെ വീടുകൾ രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിച്ചുവരികയാണ് ഇതിനിടെ ശബരിമലയിൽ ദർശനത്തിനായി വലിയ നടപ്പന്തലിൽ എത്തിയ സ്ത്രീയ്ക്കെതിരെ ഭക്തരുടെ പ്രതിഷേധം ഉയർന്നു

ഇലവുങ്കൽ മുതൽ ശബരിമല സന്നിധാനം വരെ എല്ലാട് പ്രദേശങ്ങളിലും ജില്ല റോഡുകളിലും തിങ്കളാഴ്ച വരെ നിരോധനാജ്ഞ നീട്ടിയതായി പത്തനംതിട്ട ജില്ല കളക്റ്റർ പി

ഈ സ്ഥലങ്ങളിൽ പ്രാർഥനാ യജ്ഞങ്ങൾ മാർച്ച് പ്രതിഷേധ പരിപാടികൾ നിയമവിരുദ്ധ ഒത്തുചേരലുകൾ എന്നിവയും നിരോധിച്ച് ഉത്തരവായി

വാർദ്ധകൃസഹജമായ അസുഖത്തെ തുടർന്ന് ഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിൽസയിലായിരുന്നു നിലവിൽ ബെഗുസരായി പാർലമെന്റ് മണ്ഡലത്തെയാണ് ഭോലസിംഗ് പ്രതിനിധീകരിക്കുന്നത്

ഭോല സിംഗിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി

അബ്ദുൾ റസാഖിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മുസ്ലിംലീഗ്ഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ മുസ്ലിംലീഗ് ദേശീയ സെക്രട്ടറി പി

മുസ്ലിംലീഗ് ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന അദ്ദേഹം ഇന്ന് പുലർച്ചെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്തരിച്ചത്

ഇന്ത്യയുടെ നീക്കം ദക്ഷിണേഷൃയിൽ അസ്ഥിരത ഉണ്ടാക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാരൃമന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി

ജയ്പൂരിൽ ഇന്ന് ആരംഭിച്ച ത്രിദിന ചർച്ചയിൽ സംസ്ഥാനത്തെ മുതിർന്ന ബി ജെ പി നേതാക്കൾ പങ്കെടുക്കുമെന്ന് പാർട്ടി വക്താവ് വി

അരുണാചൽ പ്രദേശിൽ കേന്ദ്ര ഭവന നഗര വികസന മന്ത്രാലയത്തിന്റെ എല്ലാ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളെയും സംബന്ധിച്ച പുനഃപരിശോധനാ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെള്ളപ്പൊക്ക മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പാസിഗഡിലും ഇറ്റാനഗറിലും ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തേ സ്മാർട്ട് സിറ്റി പദ്ധതി പൂർത്തിയാക്കുവാൻ സാധിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു

എ ഇ യിൽ സന്ദർശനം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഷാർജയിൽ നടക്കുന്ന ബിസിനസ്സ് മീറ്റിൽ വാണിജ്യ വ്യവസായ പ്രമുഖരുമായി കൂട്ടിക്കാഴ്ച നടത്തും

നാളെ മുഖ്യമന്ത്രി കേരളത്തിലേക്ക് തിരിക്കും

ടൂർണമെന്റിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ആതിഥേയരായ ഒമാനെ തോൽപ്പിച്ചിരുന്നു

കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ൂ നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ഡൈനാമോസാണ് എതിരാളിക്കൾ